മ്യതദേഹത്തിൽ നിന്ന് കോവിഡ് രോഗം പകരാൻ സാധ്യത കുറവാണെന്നും മുഖ്യമന്ത്രി

ശിവശങ്കറിനെ എൻ

എ ഇന്നും ചോദ്യം ചെയ്യും വാർത്തകൾ വിശദമായി കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ മറ്റു രാജ്യങ്ങളേക്കാൾ മികച്ച നിലയിലാണ് ഇന്ത്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു

ഓരോ ദിവസവും ഇത് മെച്ചപ്പെടുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു കൊൽക്കത്ത മുംബൈ നോയിഡ എന്നിവിടങ്ങളിൽ ഐ

ആർ സ്ഥാപിച്ച മൂന്ന് അത്യാധുനിക കോവിഡ് പരിശോധനാ ലാബുകൾ വീഡിയോ കോൺഫറൻസ് വഴി രാജ്യത്തിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്ത് കോവിഡ് മുക്തരായവരുടെ എണ്ണം പത്ത് ലക്ഷത്തിൽ എത്താറായെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രെര നിരുത്തരവാദപരമായ പെരുമാറ്റത്തിലൂടെ കോവിഡ് രോഗ വ്യാപനത്തിന് കാരണക്കാരാകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

വരും നാളുകളിൽ രോഗ വ്യാപനം വർധിക്കും പ്രഥമതല കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതിലൂടെയും മനുഷ്യവിഭവശേഷി കണ്ടെത്തുന്നതിലൂടെയും ഇതിനെ നേരിടാൻ നടപടികളാണ് കൈക്കൊള്ളുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു വിശദാശംങ്ങളുമായി ജഷിത കുമാരി

എഫ് എൽ ടി

മൃതദേഹത്തിൽ നിന്ന് കോവിഡ് രോഗം പകരാൻ സാധ്യത കുറവാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മരണപ്പെട്ട വ്യക്തിയോട് അനാദരവ് കാണിക്കുന്നത് സംസ്കാരമുള്ള സമൂഹത്തിന് ചേർന്ന നടപടിയല്ല കോവിഡ് വ്യാപന നിയന്ത്രണ കാര്യത്തിൽ സംസ്ഥാനം നിരവധി മാതൃകകൾ ആവിഷ്കരിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു

കോവിഡ് പ്രതിരോധത്തിന് ദീർഘകാല പദ്ധതി രൂപപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഗുരുതര സാഹചര്യം നിലനിൽക്കുന്ന തിരുവനന്തപുരത്ത് ലോക്ക്ഡൌൺ തുടരുകയാണ് ചീഫ്സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ഇളവു വരുത്തണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും

പലജില്ലകളിലും കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തതിനാൽ ജീവ രക്ഷ എന്ന പേരിൽ ആത്മഹത്യ പ്രതിരോധ ക്യാംപയിൻ ആരംഭിക്കാൻ തീരുമാനിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആകാശവാണി രുമ കോവിഡ് രോഗബാധിതരേക്കാൾ രോഗമുക്തരുടെ എണ്ണം വർധിച്ചത് സംസ്ഥാനത്തിന് ഇന്നലെ ആശ്വാസമായി

ഇ ജീവനക്കാർക്കും മൂന്ന് കെ

എഫ് ജീവനക്കാർക്കും രോഗം ബാധിച്ചു

രുമ എറണാകുളം ജില്ലയിൽ കോവിഡ് കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന കീഴ്മാട് ചെങ്ങമ്മനാട് ചൂർണ്ണിക്കര എടത്തല പഞ്ചായത്തുകളിലും കളമശേരി മുനിസിപ്പാലിറ്റിയിലും കോവിഡ് പരിശോധനയ്ക്കായി സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തും കൊച്ചി കോർപ്പറേഷൻ പരിധിയിൽ മൂന്ന് ടെസ്റ്റിങ് കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കും ചെല്ലാനം ഭാഗത്ത് കൂടുതൽ റാപ്പിഡ് ടെസ്റ്റുകളും നടത്തും ജില്ലാ കലക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന കോവിഡ് അവലോകന യോഗമാണ് ഈ തീരുമാനം എടുത്തത്

മെഡിക്കൽ കോളേജിലുള്ളവരാണ് നാല് പോലീസുകാർക്കും ഇന്നലെ ജില്ലയിൽ രോഗം ബാധിച്ചു

രുദ കോവിഡ് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് ജില്ലക്ക് മുതൽക്കൂട്ടായി ബീച്ച് ഗവ ജനറൽ ആശുപത്രിയിൽ അത്യാധുനിക സാങ്കേതിക സൌകര്യങ്ങളോടു കൂടിയ മെഡിക്കൽ ഐസിയു ആന്റ് സ്ട്രോക്ക് യൂണിറ്റ് സജ്ജമായി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഒരു കോടി രൂപ വിനിയോഗിച്ചാണ് ഐസിയു നിർമ്മാണം പൂർത്തീകരിച്ചത്

രോഗബാധിതരെ കണ്ടെത്താനായി അടുത്ത ദിവസം മുതൽ പ്രത്യേക സർവേ ആരോഗ്യ വകുപ്പ് നടത്തും ദേഴ കൊവിഡ് വ്യാപനം വർധിക്കുന്നതിനാൽ രോഗനിർണയം വേഗത്തിലാക്കുന്നതിനും രോഗികളെ ആശുപത്രികളിലേക്ക് മാറ്റുന്നതിനും കൊല്ലം ജില്ലയിൽ നാല് കൊറോണ കൺട്രോൾ യൂണിറ്റുകൾ മേഖലാടിസ്ഥാനത്തിൽ ആരംഭിച്ചു പ്രാദേശിക അടിസ്ഥാനത്തിൽ സമ്പർക്ക പട്ടികയും റൂട്ട് മാപ്പും തയ്യാറാക്കും രുദ കൊല്ലം ജില്ലയിൽ കോവിഡ് പ്രതിരോധത്തിന് മുൻനിരയിൽ നിൽക്കുന്ന ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും സ്വന്തം സുരക്ഷയും ജാഗ്രതയും വർധിപ്പിക്കണമെന്ന് ജില്ലാ കലക്ടർ ബി

ജില്ലയിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കൂടിയ ഉന്നതതല യോഗത്തിലാണ് നിർദേശം ജില്ലയിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്ന് യോഗം വിലയിരുത്തി രുമ കോവിഡ് വ്യാപനം വർധിച്ച ഇടുക്കി വാഴത്തോപ്പ് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഏഴു ദിവസത്തേക്ക് ട്രിപ്പിൾ ലോക്ഡൌൺ രാവിലെ നിലവിൽ വന്നു പഞ്ചായത്തിലെ ബാക്കി വാർഡുകൾ കണ്ടയ്ന്മെന്റ് മേഖലകളായിരിക്കും

രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരത്തിലധികം വിദ്യാർഥികൾ ഹാക്കത്തോണിൽ പങ്കെടുക്കും രേര സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം

ഇന്നലെ ശിവശങ്കറിനെ ഒമ്പത് മണിക്കൂർ തുടർച്ചയായി എൻ

നേരത്തെ എൻ ഐ എയും കസ്റ്റംസും ശിവശങ്കറിനെ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്തിരുന്നു രുമ അടുത്ത മാസം ഒന്നു മുതൽ സംസ്ഥാനത്തു സ്വകാര്യ ബസ് സർവീസുകൾ നിർത്തിവയ്ക്കുമെന്നു ബസ് ഉടമ സംയുക്ത സമരസമിതി പാലക്കാട് അറിയിച്ചു ജനങ്ങൾ പൊതു ഗതാഗതം ഉപയോഗിക്കാൻ മടിക്കുന്നതും ഇന്ധന വില വർധനയും സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതിനാൽ നഷ്ടം സഹിച്ചു മുന്നോട്ടു പോകാനാകില്ലെന്നു സമര സമിതി നേതാക്കൾ പറഞ്ഞു

മക്കയിൽ നിന്ന് നാളെ ഉച്ചയോടെ മിനായിലെത്തുന്ന തീർഥാടകർ അവിടെ രാപാർക്കുന്നതോടെയാണ് ഹജ്ജ് കർമങ്ങൾ ആരംഭിക്കുക മുഖ്യചടങ്ങായ അറഫാ സംഗമം മറ്റന്നാളാണ് കൊവിഡ് പ്രതിസന്ധി മൂലം സഊദിയിൽ താമസിക്കുന്ന സ്വദേശികളും വിദേശികളുമായ പതിനായിരം തീർഥാടകർക്ക് മാത്രമാണ് ഇത്തവണ ഹജ്ജിന് അവസരമുള്ളത് രേര ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും ആഗസ്റ്റ് ഒന്നു മുതൽ പതിനാലുവരെ പദ്ധതിയിൽ ചേരാൻ അപേക്ഷിക്കാമെന്ന് മന്ത്രി എ സി മൊയ്തിൻ അറിയിച്ചു

രുമ സംസ്ഥാനത്ത് പ്തസ് വൺ പ്രവേശനത്തിന് അപേക്ഷ സമർപ്പണം നാളെ വൈകീട്ട് അഞ്ചിന് ആരംഭിക്കും

അപേക്ഷയോടൊപ്പം വിദ്യാർഥികൾ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനായി അപ് ലോഡ് ചെയ്യണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട് പ്രവേശനത്തിന് പ്രോസ്പെക്ടസ് ഗവൺമെന്റ് പുറത്തിറക്കി രുമ അഭ്യസ്ഥവിദ്യരായ യുവാക്കൾക്ക് ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭ്യമാക്കാൻ കുടുംബശ്രീയുടെ നേത്വത്വത്തിൽ കണക്ട് ടു വർക്ക് പദ്ധതി നടപ്പാക്കും തൊഴിലവസരങ്ങൾ ലഭിക്കാൻ പ്രയാസപ്പെടുന്ന അഭ്യസ്ഥ വിദ്യരെ കണ്ടെത്തി പരിശീലനം നൽകി തൊഴിൽ ലഭ്യമാക്കുന്നതാണ് പദ്ധതി

റീബിൽഡ് കേരളയുടെ ഭാഗമായി സംസ്ഥാനത്തെ തിരഞ്ഞെടുത്ത സിഡിഎസുകളിലായിരിക്കും പദ്ധതി നടപ്പാക്കുക